എന്നാൽ ഉടമസ്ഥാവകാശം നിശ്ചയിക്കാൻ സ്പെഷ്യൽ ഓഫീസർക്ക് അധികാരമില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി

പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു

മലയാളത്തിന് പുറമേ തമിഴ് തെലുങ്ക് കന്നട ഹിന്ദി ഭാഷകളിലെ സിനിമകളിലും അഭിനയ മികവ് പ്രകടിപ്പിച്ചു വില്ലൻ വേഷങ്ങളിലെ അഭിനയപാടവമാണ് ക്യാപ്ടൻ രാജുവിന് പ്രേക്ഷകമനസ്സിൽ ഇരിപ്പിടം നൽകിയത്

തടാകം മോർച്ചറി അസുരൻ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ക്യാപ്ടൻ രാജു മുൻനിരയിലെത്തി

ഇതാ ഒരു സ്നേഹഗാഥ മിസ്റ്റർ പവനായി എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്

പൂൾ എ യിൽ പാകിസ്ഥാനും ഹോങ്കോംഗിനും ഒപ്പമാണ് ഇന്ത്യ

വിരാട് കോഹ്ലിക്ക് വിശ്രമം അനുവദിച്ചിരിക്കുന്നതിനാൽ രോഹിത് ശർമ്മയാണ് ഇന്ത്യയെ നയിക്കുന്നത്